നിരന്തരം വർദ്ധിപ്പിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

വേഗത കൂട്ടുന്നതായി മുഖ്യമന്ത്രി

റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് ജയം

കോവിഡ് സ്ഥിതി വിലയിരുത്താൻ ചേർന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി രാജ്യത്തെ ഓക്സിജൻ മരുന്നുകൾ എന്നിവയുടെ ലഭ്യത ആരോഗ്യമേഖലയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ തുടങ്ങിയവ അദ്ദേഹം വിലയിരുത്തി ഓക്സിജൻ ലഭൃത സംബന്ധിച്ച് സ്വീകരിച്ചിട്ടുള്ള നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ദ്ധ കർമ്മസമിതി പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിച്ചിട്ടുള്ളതായി സമിതി അറിയ്ടിച്ചു

കോവിഡ് മഹാമാരിക്കെതിരെ പോരാടാൻ വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥരുടെ സേവനം എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നത് സംബന്ധിച്ച് നടപടികളെടുക്കാൻ സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക് രാജ്യ രക്ഷാമന്ത്രി നിർദ്ദേശം നൽകി സൈന്യത്തിൽ നിന്നും വിരമിച്ച പാരാമെഡിക്കൽ നഴ്സ് ഡോക്ടർമാർ തുടങ്ങിയവരുടെ സേവനവും ഉപയോഗപ്പെടുത്താമെന്ന് അദ്ദേഹം പറഞ്ഞു

ഇവ മധ്യപ്രദേശ് ഉത്തർ പ്രദേശ് രാജസ്ഥാൻ ഡൽഹി ഗുജറാത്ത് എന്നിവിടങ്ങളിലേക്ക് എത്തിക്കും

അമേരിക്ക ഫ്രാൻസ് ജർമനി ഇസ്രയ്യേൽ എന്നീ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഇന്ത്യയ്ക്ക് സ്ഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇതുവഴി അറുപത്തിനാലായിരം രോഗികൾക്ക് ചികിത്സ നൽകാനാവും

കോവിഡ് രണ്ടാംതരംഗത്തിൽ രാജ്യത്ത് കടുത്ത ഓക്സിജൻ ക്ഷാമമുണ്ടെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് ജസ്റ്റീസ് ഡി

ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്

വൈകിട്ട് നാല് മുതൽ കോവിൻ പോർട്ടലിലോ ആശ്ലോഗ്യസേതു ആപ്പ് മുഖേനയോ രജിസ്റ്റർ ചെയ്യണം

ഈ ഘട്ടത്തിൽ പ്രതിമാസ ഉത്പാദനത്തിന്റെ പകുതി വ്യൂക്സിൻ നിർമ്മാതാക്കൾ കേന്ദ്ര സർക്കാരിന് നൽകൂർ അവശേഷിക്കുന്ന ഡോസുകൾ സംസ്ഥാനങ്ങൾക്കോ പൌതുവിപണിയ്ക്കോ നൽകാം

സംസ്ഥാനങ്ങളുടെ പക്കൽ ഇപ്പോൾ ഒരു കോടിയിലേറെ വാക്സിൻ ഡോസുകൾ കരുതൽ ശേഖരമുള്ളതായി ആരോഗ്യമന്ത്രാലയം അറിയിച്ചു

തിരുവനന്തപുരത്ത് എത്തിച്ച വാക്സിൻ മറ്റ് ജില്ലകളിലേക്ക് വിതരണം ചെയ്യും

ആഗോള തലത്തിൽ സന്തുലിതമായ വാക്സിൻ ലഭ്യത ഉറപ്പാക്കാൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ മേൽ സമ്മർദ്ദമേറിയതോടെയാണ് പ്രഖ്യാപനം യുഎസ് മരുന്ന് നിയന്ത്രണ അതോറിറ്റിയായ എഫ്

നിലവിൽ ഫൈസ്ലർ മൊഡേണ ജോൺസൺ ആൻഡ് ജോൺസൺ വാക്ക്സ്പീനുകൾക്കാണ് എഫ്ഡിഎ അംഗീകാരം നൽകിയത്

വാക്സിൻ ഈ വൈറസുകളിൽ ഫലപ്രദമാണോ എന്ന കാര്യവും വിലയിരുത്തേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു

പൊതുയിടങ്ങളിലെ രോഗ പരിശോധന ഉൾപ്പെടെ രോഗപ്രതിരോധ മാർഗങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ടി വരും മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ അടച്ചുപൂട്ടലിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ അതീവശ്രദ്ധ പുലർത്തേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

കോഴിക്കോട് എറണാകുളം മലപ്പുറം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതർ

കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ അടുത്തമാസം രണ്ടിന്ട് തീരുഞ്ഞെടുപ്പു ഫലം വരുന്നതോടെ കൂട്ടംകൂടി ആഹ്ളാദൃഷ്കൂട്സ്ം നടത്താനുള്ള സാധൃത മുന്നിൽക്കണ്ട് അടച്ചുപൂട്ടൽ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ തീർപ്പൂാക്ക്വേയാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്

കോവിഡ് വ്യാപനം തടയാൻ ഇന്നുമുതൽ കൂടുതൽ പകൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും ഗുജറാത്ത് സർക്കാർ തീരുമാനിച്ചു

വിമുക്ത ഭടന്മാർക്ക് കോവിഡ് പരിചരണം ലഭൃമാക്കാൻ സേന പ്രതിജ്ഞാബദ്ധമാണെന്നും സേവനം ആവശ്യമുള്ളവർ ഏറ്റവും അടുത്തുള്ള സൈനിക ആശുപത്രികളെ സമീപിക്കണമെന്നും രാജ്യ രക്ഷാ മന്ത്രാലയം വ്യക്തമാക്കി

രോഗസ്ഥിരീകരണ നിരക്കും പരിശോഷൻക്കളുടെ വിവരവും കൃത്യമായി നൽകുന്നതിലൂടെ മാത്രൂർമ്മ കോവിഡിനെതിരായ പോരാട്ടം ഫലവത്താവുകയുള്ളൂർഖ്ണ് അദ്ദേഹം പറഞ്ഞു

കോവിഡിനെ തുടർന്ന് തൊഴിലും വരുമാനവും ഇല്ലാതെ സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്ന പശ്ചാത്തലത്തിലാണ് നിർമ്മാണ തൊഴിലാളികൾക്ക് ചികിത്സാ സഹായം നൽകാൻ തീരുമാനിച്ചതെന്ന് ഡൽഹി സർക്കാർ പ്രസ്താവിച്ചു ചികിത്സാ സഹായത്തിനായി ആർ

സി

കൂച്ച്ബെഹാറിലെ സിതാൽകുച്ചി മണ്ഡലത്തിലേക്കുള്ള റീപോളിങ്ങും ഇതോടൊപ്പം നടക്കും

ഇതേത്തുടർന്ന് കാരൻ സംഘത്തിന് ഭൂരിപക്ഷമുള്ള ഗ്രാമങ്ങളിൽ പട്ടാളം ഏറെ നേരം വ്യോമാക്രമണം നടത്തിയതായി ഗറില്ല വക്താവ് അറിയിച്ചു

എൽ ക്രിക്കറ്റിൽ ഡൽഹി കൃാപിറ്റൽസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് ജയം